ത മൂന്നാർ പെട്ടിമുടിയിൽ മൂന്ന് മൃതദേഹങ്ങൾകൂടി കണ്ടെടുത്തു

ഗവൺമെന്റ് ജാഗ്രതാ നിർദ്ദേശം നൽകി ത ആന്ധ്രപ്രദേശിലെ വിജയവാഡയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ഒമ്പത് പേർ മരിച്ചു

ഡി എഫും ബി ജെ പിയും കൈകോർക്കുകയാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്തകൾ വിശദമായി കാർഷിക സംരംഭങ്ങൾക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന മേഖലാ വികസന നിധിയിൽ നിന്ന് സഹായം നൽകുന്ന പദ്ധതിയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു സ്റ്റാർട്ട് അപ്പുകൾക്കും കർഷക സംഘങ്ങൾക്കും വിളയെടുപ്പിന് ശേഷം സംഭരണം സംസ്ക്കരണം തുടങ്ങിയ മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ധന സഹായം നൽകുന്നത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പദ്ധതിയ്ക്ക് തുടക്കമിട്ട ചടങ്ങിൽ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു

തദ്ദേശീയ യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി ആത്മ നിർഭർ ഭാരത് സംരംഭത്തിന് ശക്തമായ പിന്തുണ നൽകാൻ രാജ്യരക്ഷാ മന്ത്രാലയം തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ വ്യക്തമാക്കി ലഘു യുദ്ധ ഹെലികോപ്റ്ററുകൾ റഡാറുകൾ ശബ്ദ തരംഗ യന്ത്ര സംവിധാനങ്ങൾ ചിലയിനം യുദ്ധക്കപ്പലുകൾ എന്നിവ നിയന്ത്രിത യുദ്ധ സാമഗ്രികളുടെ പട്ടികയിലുണ്ട് ഇവയുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കാൻ നിശ്ചിത സമയക്രമം തയ്യാറാക്കുമെന്നും കേന്ദ്രമന്ത്രി ട്വീറ്റ് ചെയ്തു രുമ ഇടുക്കി മൂന്നാർ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ മൂന്നു പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു

തെരച്ചിൽ നടപടികൾ തുടരുകയാണ്

രുമ കരിപ്പൂർ ദുരന്ത സ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി പെട്ടിമുടിയിലെ ദുരന്തസ്ഥലത്തും എത്തുമെന്ന് പ്രതീക്ഷിച്ചതായി കേന്ദ്ര സഹമന്ത്രി വി

മനുഷ്യ ജീവന് എല്ലായിടത്തും ഒരേ വിലയാണെന്നും കരിപ്പൂരിലും പെട്ടിമുടിയിലും ദുരന്തത്തിൽ പെട്ടവർക്ക് രണ്ടു തരം സഹായം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി

കരിപ്പൂർ അപകടത്തിൽപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ച ധനസഹായം തൊഴിലാളി കുടുംബങ്ങൾക്കും നൽകണം മുഴുവൻ ആളുകളേയും കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ തുടരണമെന്നും ദുരന്ത സ്ഥലം സന്ദർശിക്കാനെത്തിയ ചെന്നിത്തല നിർദ്ദേശിച്ചു രുമ സംസ്ഥാനത്ത് കാലവർഷം കനത്തോടെ കൂടുതൽ ജാഗ്രത പുലർത്താൻ ഗവൺമെന്റ് നിർദ്ദേശം നൽകി വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാൻ ജില്ലാ അധികൃതർക്ക് നിർദ്ദേശം നൽകി ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ആണ് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് രുമ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അപകട സാധ്യത മുൻ നിർത്തി രക്ഷാ പ്രവർത്തകർക്ക് റെഡ് കാറ്റഗറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്

തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു രുമ പാലക്കാട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും അപകട സാധ്യതകൾ കുറയ്ക്കാൻ പലയിടത്തും കനത്ത ജാഗ്രത തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്

രുമ കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതിനെത്തുടർന്ന് കുമരകം തിരുവാർപ്പ് അയ്മനം ആർപ്പൂക്കര പഞ്ചായത്തുകളിൽ ജലനിരപ്പ് ഉയരുന്നു

ദേദ കോട്ടയം മണർകാട് പാലമുറിയിൽ കാർ ഒഴുക്കിൽ പെട്ട് ഒരാളെ കാണാതായി എയർപോർട്ട് ടാക്സി ഡ്രൈവറായ അങ്കമാലി സ്വദേശി ജസ്റ്റിനെയാണ് പുലർച്ചെ കാണാതായത് വെള്ളക്കെട്ടിൽ കാർ നിന്നു പോയതിനെ തുടർന്ന് തള്ളി നീക്കാൻ ശ്രമിക്കുമ്പേഴായിരുന്നു അപകടം ഫയർ ഫോഴ്സ് തെരച്ചിൽ തുടരുകയാണ്

ദേദ കുട്ടനാട് വലിയ തുരുത്ത് പാടശേഖരത്തിലും കൈനകരി വടക്ക് വില്ലേജിൽ വവ്വാകാട് വടക്ക് പാടശേഖരത്തിലും മട വീണതിനെ തുടർന്ന് ആളുകളെ കുട്ടനാട് താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് നടപടി തുടങ്ങി

കണ്ണൂരിലെ ചപ്പാരപ്പടവ് കൂവേരിയിൽ പുഴയിൽ കാണാതായ ബാബു എന്ന ആളുടെ മൃതദേഹം കണ്ടെത്തി

ഇരിക്കൂറിൽ വെള്ളം താഴ്ന്നതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ വീടുകളിലേക്ക് മടങ്ങി രുമ കൊങ്കൺ തീരത്ത് മഴയും മണ്ണിടിച്ചിലും കാരണം രണ്ടു ട്രെയിനുകൾ റദ്ദാക്കി

ഒരു സ്വകാര്യാശുപത്രി ചികിത്സാ കേന്ദ്രമാക്കി മാറ്റിയ ഹോട്ടലിലാണ് പുലർച്ചെ അഞ്ച് മണിയോടെ തീപിടിച്ചത് രക്ഷാ പ്രവർത്തനങ്ങൾ തുടരുകയാണ്

വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ദുരന്തത്തിൽ ദുഃഖവും നടുക്കവും അറിയിച്ചു

രുമ കോവിഡ് സംശയിച്ച് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അയ്യമ്പുഴ മുണ്ടോപുരം സ്വദേശി മേരിക്കുട്ടി പാപ്പച്ചൻ മരിച്ചു

ന്യൂമോണിയ ബാധിച്ച നിലയിൽ സ്വകാര്യാശുപത്രിയിൽ നിന്ന് കൊണ്ടു വന്ന മേരിക്കുട്ടിക്ക് പ്രമേഹവും ഹൃദ്രോഗവും ഉണ്ടായിരുന്നു രുഭ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ ദേശ സ്നേഹ ചലച്ചിത്രോത്സവം ആരംഭിച്ചു

സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരത പ്രകടമാക്കുന്ന മലയാളം ഹിന്ദി തമിഴ് ബംഗാളി തെലുങ്ക് മറാത്തി ഗുജറാത്തി ഭാഷകളിലെ ചലച്ചിത്രങ്ങളാണ് സിനിമാസ് ഓഫ് ഇന്ത്യ സൈറ്റിൽ സൌജന്യമായി പ്രദർശിപ്പിക്കുന്നത് രുര ക്വിറ്റ് ഇന്ത്യാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്ന ചടങ്ങ് ആലപ്പുഴയിലും കണ്ണൂരിലും സംഘടിപ്പിച്ചു

രാഷ്ട്രപതിയുടെ ആശംസാ കാർഡും കലക്ടർ കൈമാറി കണ്ണൂരിൽ സ്വാതന്ത്ര്യ സമര സേനാനി മംഗലാട്ട് രാഘവനെ തലശ്ശേരി ചേറ്റംകുന്നിലെ വീട്ടിലെത്തി സബ് കലക്ടർ ആദരവ് അർപ്പിച്ചു രാഷ്ട്രപതിയുടെ ആശംസാ കാർഡും സബ് കലക്ടർ കൈമാറി

അഖിലേഷ് കുമാറിന്റെ മൃതദേഹം പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോഴായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് രുമ കരിപ്പൂർ വിമാനപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആശുപത്രി ബില്ലുകൾ ആരോഗ്യവകുപ്പ് നേരിട്ട് സ്വീകരിക്കും ഇതു സംബന്ധിച്ച നിർദേശം ജില്ലാ കലക്ടർ ജില്ലാ മെഡിക്കൽ ഓഫിസർക്ക് നല്കി രുമ കരിപ്പൂർ വിമാനാപകടം അന്വേഷിക്കാൻ പൊലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു മലപ്പുറം അഡീഷനൽ എസ്

രുമ ഇടതുമുന്നണിയെ അസ്ഥിരപ്പെടുത്താൻ യു

എഫും ബി ജെ പിയും കൈകോർക്കുകയാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അയോധ്യാ വിഷയത്തിൽ ഇരുകൂട്ടർക്കും ഒരേ നയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോവിഡിന്റെ മറവിൽ കേന്ദ്രം കോർപ്പറേറ്റ് വൽക്കരണം നടത്തുകയാണെന്നും കേരളത്തെ അവഗണിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു

ഡി